എം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണത്തിനിടയാക്കിയ വാഹനം ഓടിച്ചിരുന്നത് സർവെ ഡയ റക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെന്ന് പൊലീസ് ബഷീറിന്റെ അപകട മരണം അന്വേഷിക്കുന്നതിൽ പൊലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ

ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കാഞ്ഞ ങ്ങാട്ട് തിരുവനന്തപുരത്ത് സിറാജ് യൂണിറ്റ് ചീഫ് കെ എം ബഷീറിന്റെ മരണത്തിനിടയാക്കിയ അപകടസമയത്ത് വാഹനം ഓടിച്ചിരുന്നത് സർവെ ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനാണെന്ന് പൊലീസ് അറി യിച്ചു സാക്ഷി മൊഴികളും തെളിവും വിലയിരുത്തുമ്പോൾ ശ്രീറാം തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് വ്യക്തത ലഭിച്ചതായി കന്റോൺമെന്റ് ഡി സി

വഫ ഫിറോസ് എന്ന യുവതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് അപകടത്തിന് ഇടയാക്കിയത് അപകടസമയത്ത് ഇവരും കാറിലുണ്ടായിരുന്നു രണ്ടുപേർക്കുമെതിരെ മനപൂർവമ ല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു അപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീറാം വെങ്കി ട്ടരാമന്റെ രക്തസാമ്പിൾ പത്തുമണിയോടെ പൊലീസ് ശേഖരിച്ചു ശ്രീറാമിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപകടസമയത്ത് വാഹനം ഓടിച്ചിരുന്നത് വഫ ഫിറോസ് ആണെന്ന മൊഴിയാണ് ശ്രീറാം നൽകിയത് വഫ ഫിറോസിന്റെ മൊഴിയും പൊലീസ് രേഖപ്പെടുത്തി

നിയമസഭാ റിപ്പോർട്ടിംഗിലെ മികവിന് കേരള മീഡിയാ അക്കാ ദമി കഴിഞ്ഞയാഴ്ച ബഷീറിനെ ആദരിച്ചിരുന്നു നേരത്തെ സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയും ബഷീർ പ്രവർത്തിച്ചിരുന്നു മാധ്യമപ്രവർത്തകന്റെ അപകട മരണം അന്വേഷിക്കുന്നതിൽ പൊലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കാൻ ഡി ജി പി യ്ക്ക് നിർദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എ

കേസിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും കുറ്റമറ്റ അന്വേഷണം നടത്താൻ നട പടികൾ സ്വീകരിച്ചിട്ടുണ്ട്

എസ് ഉദ്യോഗസ്ഥർ നിയമം പാലിക്കുന്നതിൽ മാതൃ കയാവണമെന്നും സംഭവത്തിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ജില്ലാ കലക്ടറും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി കോഴിക്കോട്ട് വൃക്തമാക്കി

ബഷീറിന്റെ മരണത്തിനിടയാക്കിയ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്ന് വൃക്തമായിട്ടുണ്ടെന്ന് ഡി

അപകടം സംബന്ധിച്ച അന്വേഷണത്തിൽ പൊലീസിന് വീഴ്ച വന്നിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം തിരു വനന്തപുരത്ത് പറഞ്ഞു പിഴവുകളില്ലാതെ അന്വേഷണം പൂർത്തീ കരിക്കുമെന്നും ഡി ജി പി ഉറപ്പ് നൽകി കാർ ഓടിച്ചിരുന്നത് ആരാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് സിറ്റി പൊലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുഡിൻ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായശേഷമേ പേര് വെളിപ്പെടുത്താനാ കു

സൌമ്യമായ പെരുമാറ്റത്തിലൂടെയും സജീവമായ പ്രവർത്തനങ്ങ ളിലൂടെയും ശ്രദ്ധേയനായിരുന്നു ബഷീർ അകാല വിയോഗ ത്തിലൂടെ ഭാവിയുള്ള മാധ്യമ പ്രവർത്തകനെയാണ് നഷടപ്പെട്ട തെന്ന് മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

എം ബഷീറിന്റെ അകാല വിയോഗത്തിലൂടെ മികച്ച മാധ്യ മപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ബഷീറിന്റെ മരണം സൃഷ്ടിച്ച തീരാവേദനയിൽ പങ്കുചേരുന്നതായി അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തമ്മിലെ ഏകോപന മില്ലായ്മയും മറ്റ് വകുപ്പുകൾ തമ്മിലെ സഹകരണമില്ലായ്മയും കാരണമാണ് ഫയലുകളിൽ കാലതാമസം ഉണ്ടാവുന്നതെന്ന് മന്ത്രി എ

കോഴിക്കോട് കോർപ്പറേഷൻ ഫയൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാം അദാലത്തിലൂടെ പരിഹരിക്കാമെന്ന രീതി ആശാസ്യകരമല്ല എന്നാൽ അദാലത്ത് ഉദ്യോഗസ്ഥർക്ക് ഒരു അനുഭവപാഠമാകണ മെന്ന് മന്ത്രി പറഞ്ഞു കേരള കോൺഗ്രസ് എം ചെയർമാനായി ജോസ് കെ മാണിയെ തെരഞ്ഞെടുത്ത നടപടിക്കെതിരായ സ്റ്റേ തുടരും നേരത്തെ പാർട്ടിയിലെ പി

ജോസഫ് വിഭാഗത്തിൽപ്പെട്ടവർ നൽകിയ ഹർജിയിൽ അനുവദിച്ച സ്റ്റേ റദ്ദാക്കാൻ കഴിയില്ലെന്ന് ഇടുക്കി മുൻസിഫ് കോടതി വൃക്തമാക്കി സ്റ്റേ ഒഴിവാക്കണമെ ന്നവശ്യപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം സമർപ്പിച്ച ഹർജിയി ലാണ് വിധി ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂ ട്ട്മെന്റ് കേസിൽ മല യാളി വനിതയ്ക്ക് വിചാരണക്കോടതി വിധിച്ച തടവുശിക്ഷ സുപ്രീംകോ ടതി ശരിവെച്ചു

എസിൽ അംഗത്വമെടുത്തതിനും ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിയാ യതിനുമാണ് യസ്മീൻ മുഹമ്മദ് സഹീദിക്ക് ശിക്ഷ ലഭിച്ചത്

പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപ പ്പെട്ടു ട്രെയിൻ ഗതാഗത്തെയും ബാധിച്ചു ഇന്നും നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാകേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബി ജെ പി സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും

ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പടെ വിഷയങ്ങൾ ചർച്ച യായേക്കും പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ നഷ്ടപരിഹാര വിതരണത്തിൽ രാഷ്ട്രീയ വിവേചനം കാട്ടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു

ജമ്മുകശ്മീരിലെ ബാരാമുള്ള സോപോർ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരനെ സൈന്യം വധിച്ചു ഒരു ജവാന് പരിക്കേറ്റു സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടൽ തുടരുകയാണ്

പി എം

ബി

ചോദ്യംചെയ്യലിനായി അന്വേഷണ സംഘ ത്തിന് സി ബി ഐ പ്രത്യേക കോടതി ഇന്നലെയാണ് അനുമതി നൽകിയത് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ വാഹനാപകടത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു വെന്ന കേസിലാണ് സി ബി ഐ അന്വേഷണം നടത്തുന്നത്

ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കാഞ്ഞ ങ്ങാട്ട് നടത്താൻ തീരുമാനിച്ചു നവംബർ അവസാന ആഴ്ചയോ ഡിസംബർ ആദ്യമോ ആയിരിക്കും നാലുദിവസത്തെ കലോത്സ വം സ്കൂൾ കായികമേള നവംബർ പകുതിയോടെ കണ്ണൂരിൽ നട ത്താനും തിരുവനന്തപുരത്ത് ചേർന്ന സ്കൂൾ കാളിറ്റി ഇംപ്രൂ വ്മെന്റ് പ്രോഗ്രാം മോണറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ ഒന്നു മുതൽ മൂന്നു വരെ തൃശൂരിൽ നടത്തും

ടി ഐ കലോത്സവം അധ്യാപകദിനം എന്നിവ തിരുവനന്ത പുരത്ത് നടത്താനും യോഗത്തിൽ തീരുമാനമായി

ഉച്ചകഴിഞ്ഞ് മലപ്പുറം മുൻസിപ്പൽ ബസ്സ്റ്റാന്റ് ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ

കലാ സാംസ്ക്കാരിക രംഗത്ത് പുത്തനുണർവ് പകരാൻ കണ്ണൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിമാസ കലാ സാംസ്ക്കാരിക പരിപാടി ഇന്ന് തുടങ്ങും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടികൾ വൈകിട്ട് ഉമ്പായി അനുസ്മരണത്തോടെ തുടക്കമാവും കണ്ണൂർ സർവ്വകലാശാല ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ പ്രഭാഷണവും ഗസൽസന്ധ്യയും സാഹിത്യകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും

രണ്ട് ദിവസങ്ങളിലായി കാലിച്ചാന ടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ താലൂക്ക് പരിധിയിലെ ഏഴ് പഞ്ചയാത്തുകളിൽ നിന്ന് ദാമ കലാ പ്രതിഭകൾ പങ്കെടുക്കും ചലച്ചിത്ര സീരിയൽ നടൻ പ്രഭാകരൻ തിരുമുഖത്ത് എലത്തൂ രിൽ നിര്യാതനായി പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ആര്യൻ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അങ്ങാടി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കേരള പ്രകൃതി സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാർഥികളുടെ ജൈവ വൈവിധ്യ പഠന മഴയാത്ര അടുത്ത ശനിയാഴ്ച നടക്കും

കോഴിക്കോട് വയനാട് ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യാത്രയിൽ പങ്കെടുക്കാം

ഐ

എഫ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് സമ്മേ ളനം ഉദ്ഘാടനം ചെയ്തു

ഐ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കൌൺസിലും ഇന്ന് ചേരും കൊച്ചിയിൽ സി

ഐ ജാഥ യ്ക്കെതിരെയുണ്ടായ പൊലീസ് ലാത്തിച്ചാർജ്ജിൽ കലക്ടർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചശേഷം ചേരുന്ന ആദ്യ ജില്ലാ എക്സിക്യൂട്ടീവാണിത്

സ്വർണവിലയിൽ വീണ്ടും വർധന

ഇന്നലെ അന്തരിച്ചു സാഹിത്യകാരനും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മുൻ സെക്രട്ടറിയുമായ ഗോപി കൊടുങ്ങല്ലൂ രിന്റെ സംസ്കാരം ഇന്ന് കോട്ടയം പരിപ്പിലെ തറവാട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ